എസ് എൽ ഫുട്ബോളിൽ മുംബൈ സിറ്റി എഫ്

വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ മൈത്രി സേതു പാലം ഇന്ന് വിഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യും ത്രിപുരയിലെ ഒട്ടേറെ അടിസ്ഥാന മേഖലാ വികസന പദ്ധതികൾക്കും അദ്ദേഹം തറക്കല്ലിടും ഫെനി നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന പാലം ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലെ മെച്ചപ്പെട്ട ഉഭയകക്ഷി ബന്ധങ്ങൾക്കും സൌഹൃദത്തിനും വഴിയൊരുക്കുന്നതാണ്

അറിയപ്പെടുന്ന ഗീതാപണ്ഡിതന്മാരുടെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ഉൾപ്പെടുത്തി ഇതാദ്യമായാണ് ഭഗവത്ഗീത പ്രസിദ്ധീകരിക്കുന്നത് ദ്ദേ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുന്നണികളുടെയും പാർട്ടികളുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു

എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് പരിഗണിച്ച സ്ഥാനാർത്ഥി പട്ടിക പോളിറ്റ്ബ്യൂറോയുടെ അംഗീകാരത്തിന് വിട്ടതായാണ് റിപ്പോർട്ടുകൾ ഇതിനുശേഷം നാളെ ഏതാനും സീറ്റുകളിൽ ഒഴികെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായേക്കും ചിലയിടങ്ങളിൽ എതിർ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ധാരണകൂടി കിട്ടിയ ശേഷമായിരിക്കും മത്സരാർത്ഥികളെ തീരുമാനിക്കുന്നത്

ജില്ലാ എക്സിക്യൂട്ടീവുകൾ നൽകിയ സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ നിന്ന് സംസ്ഥാന എക്സിക്യൂട്ടീവ് കൌൺസിൽ യോഗങ്ങൾ പരിഗണിക്കുന്നത് ദേദ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ഡൽഹിയിൽ കേന്ദ്ര നേതൃത്വം തിരക്കിട്ട കൂടിയാലോചനകൾ തുടരുകയാണ് അധികം വൈകാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് അവരുടെ നീക്കം സിറ്റിംഗ് എം എൽ എമാരെ നിലനിർത്തി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ പാർട്ടിയിൽ ധാരണയായിട്ടുണ്ട് എഴുപതോളം മണ്ഡലങ്ങളിൽ അഞ്ചു വരെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ അടങ്ങിയ പട്ടികയാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ പരിഗണനയിൽ ഇരിക്കുന്നത് ഇവരിൽ നിന്ന് ഒരാളെ കണ്ടെത്തി പാർട്ടി നേതൃത്വത്തിന് സമർപ്പിക്കുകയെന്ന ദൌത്യം ശ്രമകരമാണ് യു ഡി എഫിൽ മുസ്സിംലീഗുമായും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായി ഉഭയകക്ഷി ചർച്ചകൾ തുടരുകയാണ്

ഡി

പ്രമുഖ നേതാക്കളെ മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശം കോർ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നിരുന്നു

ഡി

എസ് കേരള കോൺഗ്രസ് പി സി തോമസ് വിഭാഗം എന്നിവരുമായി ബി ജെ പിയുടെ ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു

ജെ പി കേന്ദ്ര പാർലമെന്ററി ബോർഡായിരിക്കും രണ്ടുദിവസത്തിനകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്

ഡി എഫിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുഖ്യമന്തി പിണറായി വിജയൻ കണ്ണൂർ ധർമ്മടം മണ്ഡലത്തിലെ പിണറായിയിൽ തുടക്കമിട്ടു

ഡി എഫ് ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ദേദ കോട്ടയം ജില്ലയിലെ ചങ്ങനാശേരി സീറ്റു കൂടി എൽ ഡി

ഇതോടെ ജോസ് കെ മാണി വിഭാഗം മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം പതിമൂന്നായി ഇതോടെ കോട്ടയം ജില്ലയിൽ സി

ഐയുടെ സീറ്റ് ഒന്നായി കുറഞ്ഞു

ഐ മൽസരിച്ചു പോന്ന കാഞ്ഞിരപ്പള്ളി സീറ്റ് നേരത്തേ കേരളാ കോൺഗ്രസ് എമ്മിന് വിട്ടു നൽകിയിരുന്നു പകരം ചങ്ങനാശേരി വേണമെന്ന സി

ഐയുടെ ആവശ്യം തള്ളിയാണ് കേരളാ കോൺഗ്രസ് എമ്മിന് സീറ്റ് നൽകിയത് ദേദ മലപ്പുറം ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പിൽ എൻ

എ സ്ഥാനാർത്ഥിയായി ബി ജെ പി ദേശീയ വൈസ് പ്രസിഡണ്ട് എ പി അബ്ദുള്ളക്കുട്ടി മത്സരിക്കും

ഡി എഫിൽ സി

എമ്മിലെ വി പി സാനു മത്സരിച്ചേക്കുമെന്ന് സൂചനയുണ്ട്

ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല ദേദ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് ജീവനക്കാരുടെ പട്ടിക നൽകാത്ത സ്ഥാപന മേധാവികൾക്കെതിരെ ജനപ്രാതിനിധ്യ നിയമ പ്രകാരം നടപടിയെടുക്കുമെന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർ മുന്നറിയിപ്പ് നൽകി ഈ വിഷയം ഗൌരവമായി കാണുമെന്നും കലക്ടർ പറഞ്ഞു ദേദ വയനാട് വൈത്തിരിയിൽ നിന്ന് രേഖകളില്ലാതെ കൊണ്ടു പോയ ഒന്നര ലക്ഷം രൂപ കല്പറ്റ നിയോജക മണ്ഡലം ഫ്ളൈയിംഗ് സ്ക്വാഡ് പിടികൂടി നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ രേഖകളില്ലാതെ അൻപതിനായിരം രൂപയിൽ കൂടുതൽ കൊണ്ടു പോകാൻ പാടില്ലെന്നാണ് ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥ ദേദ രണ്ടില ചിഹ്നം ജോസ് കെ മാണി വിഭാഗത്തിന് നൽകിയതിനെതിരെ പി ജെ ജോസഫ് വിഭാഗം നൽകിയ ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിച്ചേക്കും ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്

വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി പി

തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആപ്പ് ഡൌൺലോഡ് ചെയ്തും അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും പട്ടികയിൽ പേര് ചേർക്കാം പുതിയതായി പേര് ചേർക്കുന്നവരെ ഉൾപ്പെടുത്തി സപ്സിമെന്ററി വോട്ടർപട്ടിക പ്രസിദ്ധീകരിക്കും

സംസ്ഥാന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റ് പരിശോധിച്ച് പട്ടികയിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ്

എസ് എൽ ഫുട്ബോളിൽ ഗോവ എഫ് സിയെ കീഴടക്കി മുംബൈ സിറ്റി എഫ് സി ഫൈനലിൽ പ്രവേശിച്ചു പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അഞ്ചിനെതിരെ ആറ് ഗോളിനാണ് മുംബൈ ഗോവയെ രണ്ടാംപാദ സെമിയിൽ തോൽപ്പിച്ചത്

എസ് എൽ ചരിത്രത്തിലാദ്യമായാണ് മുംബൈ ഫൈനലിലെത്തുന്നത് ഇന്ന് രാത്രി ഏഴരയ്ക്ക് സെമി ഫൈനലിൽ എ

കെ മോഹൻ ബഗാൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും ശനിയാഴ്ചയാണ് ഫൈനൽ

കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി എല്ലാ ജില്ലകളിലും രോഗികളുടെ എണ്ണം കുറഞ്ഞുവരികയാണ്

ദേദ കൊൽക്കത്തയിൽ ബഹുനില കെട്ടിടത്തിലുണ്ടായ വൻ തീപിടിത്തത്തിൽ നാല് അഗ്നിശമന ജീവനക്കാർ ഉൾപ്പെടെ ഒൻപത് പേർ മരിച്ചു വൈകീട്ട് ആറുമണിയോടെയായിരുന്നു തീപിടിത്തം ഈസ്റ്റേൺ സൌത്ത് ഈസ്റ്റേൺ റെയിൽവെ ഓഫീസുകളും ഭവന സമുച്ചയവും ടിക്കറ്റ് കൌണ്ടറും ഉൾപ്പെട്ട കെട്ടിടത്തിലാണ് തീപിടിത്തം ഉണ്ടായത് ദര ടോൾ ബൂത്തുകളിൽ ഭിന്നശേഷിക്കാർക്ക് ഇളവ് അനുവദിക്കാൻ ഗതാഗത സാമൂഹ്യ നീതി വകുപ്പ് ഡയറക്ടർമാർ ഡി ജി പി ഗതാഗത കമ്മീഷണർ എന്നിവർക്ക് ഭിന്നശേഷി വിഭാഗ സംസ്ഥാന കമ്മീഷണർ എസ് എച്ച് പഞ്ചാപകേശൻ ശുപാർശ നൽകി

ദേദ വനിതാദിനത്തിൽ കണ്ണൂരിൽ പുരുഷന്മാരും സ്ത്രീകളും ഒത്തുചേർന്ന് ജൻഡർ ന്യൂട്രൽ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്തും ജില്ലാ സ്പോർട്സ് കൌൺസിലും ചേർന്നായിരുന്നു മത്സരം നടത്തിയത് ദേദ കൊല്ലം ജില്ലയിൽ ഇന്ന് നടത്താനിരുന്ന വനിതാ കമ്മീഷൻ മെഗാ അദാലത്ത് മാറ്റിവെച്ചു പുതുക്കിയ തിയ്യതി പിന്നീട് അറിയിക്കും

ജെ പി മേഖലാ പ്രസിഡൻറ് എ സുനിൽ നയിക്കുന്ന പരിവർത്തനയാത്ര ആരംഭിച്ചു

ജെ

കോഴിക്കോട് ജില്ലാ സെക്രട്ടറി വി

സജീവൻ ഉദ്ഘാടനം ചെയ്തു യാത്ര വൈകീട്ട് മാഹിയിൽ സമാപിക്കും